ഇന്ന് അതിജീവിക്കുമെന്ന പ്രതീക്ഷയിൽ കേരളം

സംസ്ഥാനത്ത് കോവിഡ് ചികിത്സയിലിരിക്കെ മൂന്ന് പേർകൂടി മരിച്ചു

സമർപ്പിക്കും ഹ് കർഷകദിനം കർഷക ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു കൃഷി വകുപ്പിന്റെ ബ്ലോക്ക് തല കാർഷിക വിജ്ഞാനകേന്ദ്രങ്ങളുടെ ഉദ്ഘാടനവും മൊബൈൽ ആപ്പ് വെബ് പോർട്ടൽ എന്നിവയുടെ ലോഞ്ചിങും നടന്നു ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ കൃഷി മന്ത്രി വി എസ് സുനിൽകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മന്ത്രിമാരായ എ സി മൊയ്തീൻ സി രവീന്ദ്രനാഥ് എന്നിവർ ഓൺലൈനിലൂടെ പങ്കെടുത്തു

മലയാളികൾക്ക് പുതൂവ്ൻഷാരംഭം

പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്താം എന്ന പ്രതീക്ഷയാണ് ചിങ്ങമാസം പങ്കു വയ്ക്കുന്നത് കാർഷിക സംസ്കാരത്തിന്റെയും ഓണക്കാലത്തിന്റേയും ഗൃഹാതുര സ്മരണകൾ ഉണർത്തിയാണ് ചിങ്ങം പടി കടന്നെത്തുന്നത് മുറ്റത്തെ ഊഞ്ഞാലും അത്തപ്പൂക്കളവുമായി എത്തുന്ന ഓണക്കാലം എന്നും മനസിന് സന്തോഷം നല്കുന്ന അനുഭവമാണ് കഴിഞ്ഞ രണ്ടു വർഷമായി പേമാരിക്കും പ്രളയത്തിനും ഇടയിലൂടെയാണ് ചിങ്ങമാസം കടന്നു പോയത് ഇത്തവണ മഴക്കെടുതിക്കൊപ്പം കോവിഡ് മഹാമാരിയും ആശങ്ക നല്കുന്നുണ്ട് എങ്കിലും ഏത് പ്രതിസന്ധിയും അതിജീവിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന നമ്മൾ മലയാളികൾ ഈ കാലവും കടന്ന് പോകുന്നത് മനസിൽ കാണുന്നു

ഇന്നലെ വൈകിട്ട് നട തുറന്നു

ശബരിമലയിൽ തീരുമാനം ബാധകമല്ല കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഒരേ സമയം അഞ്ചുപേർക്കായിരിക്കും പ്രവേശനം

സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡെപ്യൂട്ടി സ്പീക്കർ കക്ഷിനേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കേരളാ നിയമസഭാ നടപടികൾ ജനങ്ങളിലേക്കെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സഭാ ടി വി ആരംഭിക്കുന്നത്

നായർ മുതിർന്ന മാധ്യമപ്രവർത്തകനും ദി ഹിന്ദുപത്രത്തിന്റെ ഡെപ്യൂട്ടി എഡിറ്ററുമായിരുന്ന എൻ

നായർ അന്തരിച്ചു

സ്കംസ്കാരം രണ്ട് മണിക്ക് ശാന്തികവാടത്തിൽ നടക്കും

ഇതിനിടെ കോഴിക്കോടും കോവിഡ് സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന ബാലുശ്ശേരി സ്വദേശി മരിച്ചു വടകര റൂറൽ എസ്

അമർ ഫെറ്റിൽ ആകാശവാണിയോട്

ജയചന്ദ്രൻ

എം മണി ചടങ്ങിൽ അധ്യക്ഷനായിരിക്കും

വൻ തോതിൽ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്ന കാട്ടാനകൾ കർഷകരുടെ ജീവനും ഭീഷണിയായി മാറയിരിക്കുകയാണ്

സംസ്ഥാനത്തെ വ്യാവസായിക അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനായാണ് കെ സ്വിഫ്റ്റ് ഏകജാലക സംവിധാനം ഏർപ്പെടുത്തിയത് സംരംഭകർക്ക് നിക്ഷേപവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും രേഖകളും കെ സ്വിഫ്റ്റ് വഴി സമർപ്പിക്കാം

സ്വർണ്ണവില കുറഞ്ഞു